വോട്ട് തേടാൻ മുഖ്യമന്ത്രിയോട് ഗവർണർ

കുൽഭൂഷൺ ജാദവിന് തദ്ദേശ നിയമത്തിലധിഷ്ഠിതമായ നയത്രന്ത്ര പരിരക്ഷ നൽകാൻ പാകിസ്ഥാൻ തീരുമാനം

വിഭാഗം സിംഗിൾസ് ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് ഇന്ത്യയുടെ പി വി സിന്ധു ജപ്പാന്റെ നസോമി ഒകുഹാരെയെ നേരിടും

ഡി കുമാരസ്വാമിയോട് ആവശ്യപ്പെട്ടു

ഇതുവഴി കുമാരസ്വാമി ഗവൺമെന്റ് ന്യൂനപക്ഷമായതായി ഗവർണർ പറഞ്ഞു

നികുതി ഘടനയിൽ വന്ന മാറ്റ്റ് പ്രൂക്തികൾക്കും സ്റ്റാർട്ട് അപ് സംരംഭങ്ങൾക്കും ഏറെ പ്രിശ്ലോജനകരമാണെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു

ക്രമവിരുദ്ധമായി പ്രവ്ർത്തിക്കുന്ന ഓഡിറ്റർമാരെയും ബോർഡുകളെയും നേരിട്ട് നിയ്ക്ത്രിക്കാനുള്ള അധികാരമാണ് ആർ

കാർഷിക മേഖലയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ന്യൂഡൽഹിയിൽ ചേർന്ന മുഖ്യമന്ത്രിമാരുടെ ഉന്നതതല സമിതി ഇക്കാര്യം ചർച്ച ചെയ്തു സമിതിയുടെ തീരുമാനങ്ങൾ ഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ വിശദീകരിക്കുകയായിരുന്നു കൺവീനർ കൂടിയായ ശ്രീ ഫട്നാവിസ്

സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്കു് സംവരണം ഏർപ്പെടുത്തിയ ശേഷമുളള റെയിൽവേയൂളട്ട് പൂആദ്യ പരീക്ഷ കൂടിയാണ് ഇത്

ജി

കൈപ്പുസ്തകം പുതിയ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സൌകര്യപ്രദവും സുഗമവുമായിരിക്കുമെന്ന് ന്യൂഡൽഹിയിൽ ചേർന്ന പ്രകാശന ചടങ്ങിൽ മന്ത്രി പറഞ്ഞു അക്കാദമിക് വിഗദ്ധരെ കണ്ടെത്തുന്നതുൾപ്പെടെ വിദ്യാർത്ഥികൾക്ക് വിവിധ തരത്തിൽ ഉപയുക്തമാകുന്നതാണ് കൈപ്പുസ്തകമെന്നും കേന്ദ്രമന്ത്രി കൂട്ടിച്ചേർത്തു

വളരെ വിപുലമായ ഒരുക്കമാണ് പുതിയ വിദ്യാഭ്യാസനയം രൂപപ്പെടുത്താൻ ഉണ്ടായതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു

വിയന്ന ഉടമ്പടി പ്രകാരമുള്ള നയതന്ത്ര പരിരക്ഷയ്ക്ക്പ്പിക്ടാൻ അർഹനാണെന്ന് കാണിച്ച് കുൽഭൂഷൺ ജാദവ് നേരത്തിൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ വാദിച്ചിരുന്നു

ഇത് കണക്കിലെടുത്താണ്ട് പൂർകിസ്ഥാന്റെ നടപടി

പൈപ്പ്ലൈൻ പൂർത്തിയായതോടെ ടാങ്കർ വഴിയുള്ള ഇന്ധന നീക്കത്തിന്റെ ബുദ്ധിമുട്ടുകൾ ഒഴിവായി

നേപ്പാളിലേക്ക് സുഗമവും ചെലവു കുറഞ്ഞതും പരിസ്ഥിതി സൌഹൃദവുമായ രീതിയിൽ ഇന്ധനം എത്തിക്കാൻ ഇതുവഴി കഴിയും കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസത്തിൽ ഇന്ത്യാ സന്ദർശനത്തിനിടെ നേപ്പാൾ പ്രധാനമന്ത്രി കെ

ശർമ ഒലിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചേർന്നാണ് പൈപ്പ്ലൈൻ നിർമ്മാണം ഉദ്ഘാടനം ചെയ്തത്

രണ്ടാം വട്ടം അധികാരത്തിൽ എത്തിയതിനുശേഷം ശ്രീ നരേന്ദ്രമോദി നടത്തുന്ന രണ്ടാമത്തെ മൻ കീ ബാത്ത് ആണ് ഇത്

തന്റെ ആശയങ്ങളും ചിന്തകളും പൊതുജനങ്ങളുമായി പങ്കുവയ്ക്കുന്ന മൻ കി ബാത്തി ലേക്ക് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സമർപ്പിക്കാൻ പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു

വൈക്കോയുടെ അപ്പീൽ ഹർജിയിൽ ജസ്റ്റിസ് പി

അടുത്തിടെ നടന്ന തെരഞ്ഞെടുപ്പിൽ വൈക്കോ തമിഴ്നാട്ടിൽ നിന്നും രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു

ഏഷ്യയിലെ തന്നെ ഒന്നാംകിട സ്ഥാപനമായ ലെതർ കോംപ്ലക്സിലെ പുതിയ നിക്ഷേപം വഴി കുറഞ്ഞത് അഞ്ച് ലക്ഷം പേർക്കെങ്കിലും തൊഴിൽ ലഭ്യമാക്കുമെന്ന് ശ്രീമതി മമത പറഞ്ഞു തുകൽ വ്യവസായത്തിന്റെ പുരോഗതിയ്ക്കും കയറ്റുമതി വർദ്ധനയ്ക്കും ഗവൺമെന്റിന്റെ എല്ലാവിധ പിന്തുണയും മുഖ്യമന്ത്രി വാഗ്ദാനം ചെയ്തു

ഇതിന്റെ ആദ്യപടിയായി സംസ്ഥാന ഗവൺമെന്റ് സ്ഥകാര്യ കമ്പനിയുമായി ചേർന്ന് നടപ്പിലാക്കുന്ന ആകാശത്ത് നിന്ന് മരുന്നുകൾ എന്ന പദ്ധതി ആരംഭിച്ചു

ഇന്നലെ നടന്ന പ്രീ കാർട്ടറിൽ ഡെൻമാർക്കിന്റെ മിയ ബ്ലിച്ച് ഫെൽറ്റിനെ യാണ് സിന്ധു തോൽപ്പിച്ചത്

നേരത്തെ നടന്ന മറ്റൊരു പ്രീ ക്വാർട്ടർ മൽസരത്തിൽ മലേഷ്യയുടെ സോണില ചീ യെ അനായാസം മറികടന്നാണ് ഒകുഹാരെ കാർട്ടറിലെത്തിയത് ന്യൂസ് ഡെസ്ക് ആകാശവാണി

വിരാട് കോഹ്ലിയും മഹേന്ദ്രസിങ്ങ് ധോണിയും ടീമിലുണ്ടാകുമോ എന്ന ചർച്ചകൾക്കിടെയാണ് യോഗം മാറ്റിയത്

അടുത്ത മാസം മൂന്ന് മുതൽ സെപ്റ്റംബർ മൂന്നു വരെ ഇന്ത്യയും വെസ്റ്റ് ഇൻഡീസും മൂന്ന് ഏകദിനവും മൂന്ന് ട്വന്റി ട്വന്റിയും രണ്ട് ടെസ്റ്റും കളിക്കും

ഈ ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്

ഇന്നും നാളെയും കേരളതീരത്ത് ശക്തമായ കാറ്റിന് സാധൃതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണകേന്ദ്രം അറിയിച്ചു